രാജ്പഥിൽ നാളെ രാവിലെ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ദേശീയപതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിസഭാംഗങ്ങളും പ്രമുഖരും റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും കനത്ത സുരക്ഷയാണ് ഡൽഹിയിലും പരിസരപ്രദേശങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്

ഉന്നം തെറ്റാതെ വെടിവയ്ക്കാൻ കഴിയുന്നവരെ രാജ്പഥ് മുതൽ ചെങ്കോട്ട വരെ എട്ട് കിലോമീറ്റർ ദൂരം ഉയർന്ന കെട്ടിടങ്ങളിൽ നിയോഗിക്കുമെന്ന് അധികൃതർ അറിയിച്ചു

ഡൽഹിയിലും അതിർത്തി പ്രദേശങ്ങളിലുമായി ചതുർതല സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും പൊലീസ് അറിയിച്ചു രാള കോഴിക്കോട് ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷവും സെറിമോണിയൽ പരേഡും നാളെ രാവിലെ എട്ടിന് കോർപ്പറേഷൻ ഓഫിസിന് സമീപം നടക്കും മന്ത്രി ടി പി രാമകൃഷ്ണൻ പതാക ഉയർത്തും പരേഡിന്റെ ഡ്രസ് റിഹേഴ്സൽ ഇന്നലെ നടന്നു ട്രാഫിക് പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് എസ് പി സി എൻ സി സി എൻ എസ് എസ് സ്കൌട്ട്സ് ഗൈഡ് റെഡ്ക്രോസ് തുടങ്ങിയവയുടെ പ്ലാറ്റൂണുകൾക്ക് പുറമേ വിവിധ ഗവൺമെന്റ് വകുപ്പു കളുടെ നിശ്ചലദൃശ്യങ്ങളും പരേഡിൽ അണിനിരക്കും സ്വാതന്ത്ര്യസമര സേനാനികളും സാംസ്കാരിക നായകരും ചടങ്ങിൽ പ്രത്യേക അതിഥികളായി സംബന്ധിക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പ്ലാറ്റുണുകളേയും സ്കൂളുകളേയും പരിപാടിയിൽ ആദരിക്കും

വെസ്റ്റ്ഹിൽ വിക്രം മൈതാനിയിലായിരുന്നു ഇതുവരെ റിപ്പബ്ലിക് ദിനചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത് ദേദ റിപ്പബ്ലിക് ദിന പരേഡിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നാളെ കോഴിക്കോട് സൌത്ത് ബീച്ചിൽ ഗതാഗത നിയന്ത്രണം ഏർപെടുത്തി സൌത്ത് ബീച്ച് റോഡ് വഴി വടക്കോട്ട് പോകുന്ന വാഹനങ്ങൾ വലിയങ്ങാടി ടൌൺ സ്റ്റേഷൻ റോഡ് വഴി നാലാം ഗെയിറ്റ് ഭാഗത്തേക്ക് പോകണം വടക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ ഗാന്ധി റോഡ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഓവർ ബ്രിഡ്ജ് കയറി ക്രിസ്ത്യൻ കോളജ് വഴി പോകണം ഇന്ന് ഉച്ചക്ക് ശേഷം സൌത്ത് ബീച്ച് മുതൽ ഓപ്പൺ സ്റ്റേജ് വരെ ഭാഗത്ത് വാഹന പാർക്കിംഗ് അനുവദിക്കില്ലെന്നും സിറ്റി പോലീസ് കമ്മീഷണർ കെ സുദർശൻ അറിയിച്ചു ദേഴ പൌരത്വ നിയമത്തിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് നേതൃത്വത്തിൽ നാളെ വൈകിട്ട് മനുഷ്യ ശൃംഖല തീർക്കും കാസർകോട് മുതൽ തിരുവനന്തപുരം കളിയിക്കാവിള വരെയാണ് ശൃംഖല നാളെ വൈകീട്ട് മൂന്നരക്ക് റിഹേഴ്സൽ നടത്തും തുടർന്ന് ഭരണഘടനയുടെ ആമുഖം വായിക്കുകയും ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്യും സിപിഐഎം പി ബി അംഗങ്ങളായ എസ് രാമചന്ദ്രൻപിള്ള കാസർകോട്ടും എംഎ ബേബി കളിയിക്കാവിളയിലും മനുഷ്യ ശൃംഖലയിൽ അണിചേരൂം

തെരഞ്ഞെടുപ്പ് സാക്ഷരത ശക്തമായ ജനാധിപത്യത്തിനും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ ആശയം തെരഞ്ഞെടുപ്പു പ്രക്രിയയിൽ ജനങ്ങളുടെ വിശ്വാസം പുതുക്കാനും വോട്ടർമാരെ ബോധവത്ക്കരിക്കാനും ആവശ്യമായ ഒരു വർഷം നീളുന്ന പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്

സംസ്ഥാന തലസ്ഥാനങ്ങൾ ജില്ലാആസ്ഥാനങ്ങൾ പോളിംഗ്സ്റ്റേഷനുകൾ എന്നിവയടക്കം പത്ത് ലക്ഷത്തോളം കേന്ദ്രങ്ങളിൽ ദിനാചരണപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മതിദായക ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൂടുതൽ ചലനാത്മകവും പങ്കാളിത്ത സ്വഭാവത്തോടു കൂടിയതുമാക്കിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നന്ദിയറിയിക്കുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു കൂടുതൽ വോട്ടർ ബോധവത്ക്കരണത്തിനും പങ്കാളിത്തത്തിനും ദിനാചരണം വഴിയൊരുക്കുമെന്ന് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു ഡൽഹിയിലെ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും സംസ്ഥാന ജില്ലാതലങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും

സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് അയ്യൻകാളി ഹാളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു

മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്ക്കരൻ എന്നിവർ പങ്കെടുത്തു ദരദ ശാസ്ത്രീയ വീക്ഷണങ്ങളെ നിരാകരിക്കുന്ന പ്രവണതകൾ അധികാര കേന്ദ്രങ്ങളിൽ നിന്നു തന്നെ ഉണ്ടാകുന്നത് അപകടകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രസത്യങ്ങൾ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് ഏറിവരുന്ന സാഹചര്യമാണ് രാജ്യത്തെന്നും പിണറായി പറഞ്ഞു യുവ ശാസ്ത്രജ്ഞരും ശാസ്ത്ര കോൺഗ്രസ് അടക്കം വേദികളും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

കേരളത്തിൽ നവോത്ഥാന കാലഘട്ടത്തിൽ തന്നെ ശാസ്ത്രാഭിമുഖ്യം ശക്തിപ്പെടുത്താൻ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു സഹോദരൻ അയ്യപ്പന്റെ സയൻസ് ദശകം ഇതിന് ഉദാഹരണമാണെന്ന് മുഖമന്ത്രി പറഞ്ഞു ലോകത്ത് പലയിടത്തും പടർന്നുപിടിക്കുന്ന കൊറോണ വൈറസിനെതിരെ പ്രതിരോധ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് ശക്തിപ്പെടുത്തിയതായും

യുവശാസ്ത്രജ്ഞർക്ക് പുരസ്കാരങ്ങളും ചടങ്ങിൽ മുഖ്യമന്ത്രി വിതരണം ചെയ്തു ദുദ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രസീൽ പ്രസിഡന്റ് ജൈർ മെസിയാസ് ബോൾസനാരോയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും

പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിനെയും ബോൾസനാരോ സന്ദർശിക്കും എട്ട് മന്ത്രിമാർ നാല് പാർലമെന്റ് അംഗങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥർ ബിസിനസ്സ് പ്രതിനിധി സംഘം എന്നിവർ ബ്രസീൽ പ്രസിഡന്റിന് ഒപ്പം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് നാല് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബോൾസനാരോ ന്യൂഡൽഹിയിൽ എത്തിയത് ദരദ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ച് വിളിക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്ന പ്രമേയത്തിന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല സ്പീക്കറുടെ അവതരണാനുമതി തേടി സംസ്ഥാന നിയമസഭയുടെ അധികാരത്തിനെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന ഗുരുതര സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നതായി അദ്ദേഹം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഭരണഘടനയനുസരിച്ച് ഗവർണർ നിയമസഭയുടെ ഭാഗമാണെന്ന് ഓർമ്മിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കിയതിനെ ചോദ്യം ചെയ്യാൻ ഗവർണർക്ക് അധികാരമി ല്ലെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു നിരന്തര വാർത്താസമ്മേള നങ്ങളിലൂടെ ഗവർണർ നിയമസഭയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുകയും പരസ്യ ഏറ്റുമുട്ടലിന് ഒരുങ്ങുകയുമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഗവൺമെന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മാറ്റം വരുത്താൻ ഗവർണർക്ക് അധികാരമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും ചെന്നിത്തല അറിയിച്ചു സംസ്ഥാനത്തെ ബന്ധുനിയമനം പ്രതിഷേധാർഹമാണ് പിൻവാതിലിലൂടെ ബന്ധുക്കളെയും ആശ്രിതരെയും നിയമിക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ അവകാശങ്ങൾക്കെതിരാണെന്നും ചെന്നിത്തല പറഞ്ഞു

സാമൂഹികമാധ്യമങ്ങൾക്ക് ഏർപെടുത്തിയ വിലക്ക് പിൻവലിച്ചിട്ടില്ല

തെക്കൻകശ്മീരിലെ ത്രാൽ ഹാരി പാരി മേഖലയിൽ സുരക്ഷാസേന ഭീകരരെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു

ദേദ മാരകമായ കൊറോണ വൈറസ് അമേരിക്ക ഹോങ്കോംഗ് മക്കാവോ തായ് വാൻ നേപ്പാൾ ജപ്പാൻ സിംഗപ്പൂർ ദക്ഷിണ കൊറിയ തായ്ലാൻഡ് വിയറ്റ്നാം രാജ്യങ്ങളിൽ പടരുകയാണ്

കൊറോണ വൈറസിന് എതിരെ വാക്സിൻ വികസിപ്പിക്കുന്നതിന് ചൈനയിലെയും അമേരിക്കയിലെയും ഗവേഷകർ ഒരുമിച്ച് പരിശ്രമിക്കുകയാണ് ന്യൂമോണിയയുടെ ലക്ഷണം കാണിക്കുന്ന വൈറസ് ബാധക്ക് നിലവിൽ ചികിത്സയില്ല

വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന എല്ലാവരെയും ഇന്നും തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിൽ പരിശോധിച്ചു അസുഖ ലക്ഷണമുള്ളവർ അതത് ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചു പരിശോധനാറിപ്പോർട്ട് നേരിട്ട് ആരോഗ്യവകുപ്പിന് കൈമാറുന്നുണ്ട്

മികച്ച വിദേശ കോച്ചുമാരെ അവരുടെ പ്രതിഫലം നോക്കാതെ നിയമിക്കുന്നതോടൊപ്പം ഇന്ത്യൻ കോച്ചുകളെയും നിയമിക്കുമെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു ദേദ ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരളാ ബ്ലാസ്റ്റേഴ്സ് ഗോവയുമായി ഏറ്റുമുട്ടും വൈകീട്ട് ഏഴരക്ക് മഡ്ഗാവിലാണ് മത്സരം ദേദ ഐ ലീഗ് ഫുട്ബാൾ ഹോംമത്സരത്തിൽ നാളെ ഗോകുലം കേരള എഫ് സി ഗോവ ചർച്ചിൽ ബ്രദേഴ്സിനെ നേരിടും വൈകീട്ട് ഏഴിന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം ദേഴ സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഓപ്പറേഷൻ ഒളിമ്പ്യ സ്കീം തെരഞ്ഞെടുപ്പ് മറ്റെന്നാൾ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കും കണ്ണൂർ കാസർകോഡ് ജില്ലകളിലെ സ്കൂൾ പ്ലസ് വൺ കോളേജ് സ്പോർട്സ് അക്കാദമി എലൈറ്റ് എന്നീ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പങ്കെടുക്കാം

കെ പി സി സി സെക്രട്ടറിമാരെ അടുത്ത മാസം പകുതിയോടെ നിയമിക്കുമെന്ന് സംസ്ഥാന പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു